എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ തോൽപ്പിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള എണ്ണ പ്രകൃതി വാതക കമ്പനികളുടെ മേധാവികളുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി മറ്റന്നാൾ ആശയവിനിമയം നടത്തും നിതി ആയോഗും പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയവുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

ഇതിന് മുന്നോടിയായി എനർജി ഫോറം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ടെട്ട രാജ്യത്ത് ഉള്ളിവില കുറയ്ക്കാനും ലഭ്യത ഉറപ്പുവരുത്താനും നടപടി സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു വ്യാപാരികൾ ഉള്ളി സൂക്ഷിച്ചുവെയ്ക്കുന്നതിന് പരിധി നിശ്ചയിച്ചതായി ഉപഭോക്തൃ കാര്യ സെക്രട്ടറി ലീല നന്ദൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു

കേരളത്തിലും അസമിലും ഗവൺമെന്റുകൾ ചില്ലറ വില്പനശാലകൾ വഴി ഉള്ളി വിതരണം ചെയ്യുന്നുണ്ടെന്നും ഉപഭോക്തൃകാര്യ സെക്രട്ടറി പറഞ്ഞു

രണ്ട് ജില്ലകളിൽ ഇന്നലെ രോഗികളുടെ എണ്ണം ആയിരത്തിലേറെയാണ്

ന്യൂസ് ഡസ്ക് ആകാശവാണി ടെട്ട കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനം മികച്ച രീതിയിൽ നടക്കുകയാണെന്ന് മന്ത്രി എ

കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളജിൽ ആരംഭിച്ച കോവിഡ് സെക്കന്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

സാമൂഹിക അകലം ഉൾപ്പെടെ കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കാതെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ആളുകൾ തടിച്ചുകൂടുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം

ടെട തൃശൂർ ജില്ലയിൽ കോവിഡ് വ്യാപനത്തിന്റ സാഹചര്യത്തിൽ റാപിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവായി ഇതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ്തല ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും ടെട്ടി കൊവിഡ് പ്രതിരോധ മുൻകരുതലുകൾ പിന്തുടരുന്നതിൽ ആരോഗ്യപ്രവർത്തകരും മുൻനിര പോരാളികളും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കണ്ണൂർ ജില്ലാ കൊവിഡ് സർവൈലൻസ് ഓഫീസർകൂടിയായ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം

ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കാനും മരണസംഖ്യ കുറയ്ക്കാനും നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ലോകത്ത് കൊവിഡ് ബാധിതർ നാലേകാൽ കോടിയോടടുത്തു

യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് ബുധനാഴ്ച മുതൽ കമ്മീഷൻ വെബ്സൈറ്റ് വഴി മെയിൻ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം മെയിൻ പരീക്ഷ ജനുവരി എട്ട് മുതൽ നടക്കും

കോവിഡ് പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണത്തെ നവമി ആഘോഷം വിശദാംശങ്ങളുമായി ഹബീബ് റഹ്മാൻ ടെട ക്ഷേത്രങ്ങളിലും വീടുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമായി പുസ്തകങ്ങളടക്കം പഠനോപകരണങ്ങൾ ഇന്നലെ വൈകീട്ട് പൂജയ്ക്ക് വെച്ചു വിജയദശമി ദിനമായ മറ്റന്നാൾ ആണ് പൂജയെടുപ്പും വിദ്യാരംഭവും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഇത്തവണ ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മാതൃശക്തിയെ ബഹുമാനിക്കാനും ശാക്തീകരിക്കാനും എല്ലാവരും ഉറച്ച തീരുമാനമെടുക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു രുദ കോവിഡ് വ്യാപനം കൂടിവരുന്ന സാഹചര്യത്തിൽ നവരാത്രി ആഘോഷം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുമാത്രം നടത്തണമെന്ന് കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ

ബൊമ്മക്കൊലു ആഘോഷങ്ങളും വിദ്യാരംഭവും വീടുകളിൽ മാത്രമായി ചുരുക്കണമെന്നും ഡി

ടെട്ട പാലക്കാട് ജില്ലയിൽ സ്വകാര്യ മില്ലുകൾ ഒന്നാം വിള നെല്ല് സംഭരിക്കും

സുനിൽകുമാർ പി തിലോത്തമൻ എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് രണ്ടു മാസത്തേക്ക് നെല്ല് എടുക്കാൻ താൽക്കാലിക കരാറിന് മില്ലുകാർ തയ്യാറായത് ഇന്ന് കരാർ ഒപ്പിട്ട് തിങ്കളാഴ്ച മുതൽ നെല്ല് സംഭരിക്കാനാണ് തീരുമാനം

പേരുകൾ ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സ്ഥാനമാറ്റം നടത്തുന്നതിനും ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്

എൽ ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യൻമാരായ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർകിംഗ്സിനെ പത്തുവിക്കറ്റിന് പരാജയപ്പെടുത്തി

ടെട്ടി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മത്സ്യകൃഷിയിൽ കേരളം വൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി ജെ

കണ്ണൂർ മാപ്പിള ബേ ഫിഷറീസ് കോംപ്ലക്സിൽ ആരംഭിച്ച മത്സ്യത്തൊഴിലാളി പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി വെള്ളയിൽ താനൂർ ചെല്ലാനം ഹാർബറുകളുടെ പണി ഡിസംബറോടെ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു ടെട വ്യാജമദ്യത്തിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപനയും കടത്തലും തടയുന്നതിന് പരിശോധന കർശനമാക്കാൻ മന്ത്രി ടി

ടെട സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ നാടുകാണിയിൽ ആരംഭിക്കുന്ന ടെക്സ്റ്റയിൽ ഡൈയിംഗ് ആന്റ് പ്രിന്റിംഗ് യൂണിറ്റിന്റെ ശിലാസ്ഥാപനം മന്ത്രി ഇ

ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് അത്യാവശ്യമായ നൂലും തുണിയും ഡൈ ചെയ്യുന്ന യൂണിറ്റും ആധുനിക രീതിയിൽ ഡിജിറ്റൽ പ്രിന്റിംഗ് ഉൾപ്പെടെ സൌകര്യങ്ങളുമാണ് ഇവിടെ ഒരുക്കുന്നത് ടെട വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം ഇടവകയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം രമ്യമായി ഒത്തുതീർക്കാൻ ഗവൺമെന്റ് സദാ സന്നദ്ധമാണെന്നും സമരക്കാർ ഉന്നയിച്ച ഒട്ടുമിക്ക ആവശ്യങ്ങളിലും ഇതിനകം അനുകൂല നിലപാട് സ്വീകരിച്ചതാണെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു

രുദ ഇടുക്കി കട്ടപ്പന നെടുങ്കണ്ടം സംസ്ഥാന പാതയിൽ അനധികൃത മത്സ്യ വ്യാപാരത്തിനെതിരെ നഗരസഭാ ആരോഗ്യവിഭാഗം നടപടി കർശനമാക്കി നെടുങ്കണ്ടം പുളിയൻമല റോഡിൽ ഗതാഗത തടസ്സവും മലിനീകരണവും പതിവായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നടപടി